സുഷമ സ്വരാജ് അന്തരിച്ചു അന്ത്യം ഹൃദയസ്തംഭനം മൂലം ഇന്നലെ ന്യൂഡൽഹിയിൽ

നിര്യാണത്തിൽ രാഷ്ട്രപത്വി ് ഉപ്പരാഷ്ട്രപതി പ്രധാനമന്ത്രി തുടങ്ങി നിരവധി നേതാക്കൂൾ അനുശോചനം അറിയിച്ചു

ജമ്മു കാശ്മീർ പുനഃസംഘടനാ ബില്ലും പ്രത്യേക പദവി റദ്ദാക്കുന്ന പ്രമേയവും പാർലമെന്റ് പാസ്സാക്കി നടപടി ചരിത്രപരമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി

ഇന്ന് ആറ് ജില്ലകളിൽ ഓറഞ്ച് അലെർട്ട്

അവസാന മൽസരത്തിൽ ഇന്ത്യയുടെ വിജയം ഏഴ് വിക്കറ്റിന്

ജെ

നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ സുഷമ സ്വരാജ് അന്തരിച്ചു ഹൃദയാഘാതത്തെ തുടർന്ന് ഡൽഹി എയിംസ് ആശുപത്രിയിലായിരുന്നു അന്ത്യം

വിദഗ്ധ ഡോക്ടർമാർ അടങ്ങിയ സംഘം പരിശ്രമിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല വിവരമറിഞ്ഞ് കേന്ദ്ര ആരോഗ്യ മന്ത്രി ഹർഷ വർദ്ധൻ ഉൾപ്പെടെ നിരവധി കേന്ദ്രമന്ത്രിമാർ ആശുപത്രിയിൽ എത്തിയിരുന്നു

ശ്രീമതി സുഷമ സ്വരാജിന്റെ നിര്യാണത്തിൽ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ഉപരാഷ്ട്രപതി എം വെങ്കയ്യനായിഡു പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി തുടങ്ങിയ പ്രമുഖ നേതാക്കൾ ദുഃഖം രേഖപ്പെടുത്തി നടുക്കുന്ന വാർത്തയാണ് ഇതെന്ന് രാഷ്ട്രപതി പറഞ്ഞു പൊതു ജീവിതത്തിൽ സത്യസന്ധത പുലർത്തിയ നേതാവ് സുഷമയെന്നും രാഷ്ട്രപതി അഭിപ്രായപ്പെട്ടു വൃക്തിപരമായി തനിക്കും രാജ്യത്തിനാകെയും വലിയ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നതെന്ന് ഉപരാഷ്ട്രപതി വെങ്കയ്യ നായിഡു പറഞ്ഞു ഒരു മികച്ച പാർലമെന്റ് അംഗത്തെയാണ് നഷ്ടമായതെന്നും ശ്രീ

ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ തിളക്കമാർന്ന വ്യക്തിത്വത്തെയാണ് നഷ്ടമായതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചിച്ചു സാധാരണക്കാർക്കും പൊതുജനങ്ങൾക്കും വേണ്ടി ജീവിതം ഉഴിഞ്ഞുവച്ച വൃക്തിയായിരുന്നു ശ്രീമതി സുഷമയെന്നും പ്രധാനമന്ത്രി ട്വിറ്ററിൽ കുറിച്ചു മികച്ച പാർലമെന്റ് അംഗം എന്നതിലുപരി ഒരു മികച്ച പാർട്ടി പ്രവർത്തകയുമായിരുന്നു ശ്രീമതി സുഷമ സ്വരാജ് എന്ന് പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു

ബിജെപി ആസ്ഥാനത്ത് അന്തിമോപചാരം അർപ്പിച്ച ശേഷം ഇന്ന് മൂന്ന് മണിക്ക് പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ ലോധി റോഡിലെ വൈദ്യുത ശ്മശാനത്തിൽ സംസ്ക്കാര ചടങ്ങ് നടക്കും

ഇന്ത്യൻ വിദേശകാര്യമന്ത്രിയെന്ന നിലയിൽ അവർ നടത്തിയ പ്രവർത്തനങ്ങൾ ഏറെ ശ്രദ്ധേയമായിരുന്നു

സാധാരണ ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ വേഗത്തിൽ ഇടപ്പെട്ട് പരിഹാരം ഉണ്ടാക്കാൻ ശ്രമിച്ച ജനകീയ മുഖമുള്ള ഭരണാധികാരിയായിരുന്നു സുഷമ സ്വരാജ് വിദേശത്തുള്ള ഇന്ത്യക്കാരുടെ പ്രശ്നങ്ങളിൽ കൃത്യമായി ഇടപെടുകയും പരിഹാരം കണ്ടെത്തുകയും ചെയ്യുന്നതിന് അവർ പ്രത്യേകം ശ്രദ്ധ ചെലുത്തി കക്ഷി രാഷ്ട്രീയ ഭേദമെന്യേ എല്ലാ വിഭാഗം ആളുകളുടെ പിന്തുണയും അവർ നേടി

ദേവിലാലിന്റെ നേതൃത്വത്തിലുള്ള ജനതാ പാർട്ടി ഗവൺമെന്റിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ക്യാബിനറ്റ് മന്ത്രിയായി

ഡൽഹിയുടെ ആദ്യ വനിത മുഖ്യമന്ത്രി കൂടിയായിരുന്നു അവർ

അടൽ ബിഹാരി വാജ്പേയിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ ഗവൺമെന്റിൽ വാർത്ത വിതരണ പ്രക്ഷേപണം ആരോഗ്യം വാർത്ത വിനിമയം എന്നീ മന്ത്രാലയങ്ങളുടെ ചുമതല വഹിച്ച ശ്രീമതി സുഷമ സ്വരാജ് ഒന്നാം മോദി ഗവൺമെന്റിൽ വിദേശകാര്യ മന്ത്രിയായി നിലവിൽ ബിജെപിയുടെ പാർലമെന്ററി ബോർഡ് അംഗവുമാണ്

ജമ്മു കാശ്മീർ പുനഃസംഘടനാ ബില്ലും ലോക്സഭ വോട്ടിനിട്ട് പാസ്സാക്കി

കാശ്മീരിനെ ഇന്ത്യയുടെ മുഖ്യധാരയിലേക്ക് എത്തിക്കാൻ ബില്ല് സഹായിക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ പറഞ്ഞു പാക് അധീന കാശ്മീരും ഇന്ത്യയുടെ ഭാഗമാണെന്നും അദ്ദേഹം പറഞ്ഞു

ഏമ്മുട്കാശ്മീർ പുനഃസംഘടനാ ബില്ലും പ്രമേയവും പ്പ്ശ്ല്മെന്റിൽ അവതരിപ്പിച്ച് അംഗീകാരം നേടിയ ശേഷമാണ് സ്പീക്കർ ഓം ബിർള ഇത് സംബന്ധിച്ചു പ്രഖ്യാപനം നടത്തിയിത്ത്

രാജ്യസഭ കൂടി ഇന്നലെ പാസ്സാക്കിയതോടെയാണ് ബില്ല് പാർലമെന്റിൽ പാസായത്

ജയശങ്കർ അഫ്ഗാനിസ്ഥാനിലെ അമേരിക്കയുടെ പ്രത്യേക പ്രതിനിധിയായ സൽമെ ഖലീൽ സാദുമായി ഇന്നലെ ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി അഫ്ഗാനിസ്ഥാനിലെ നിലവിലുള്ള സ്ഥിതി വിവരങ്ങളുടെ സമ്പൂർണമായ വിവരം അദ്ദേഹം ധരിപ്പിച്ചതായി ശ്രീ ജയ്ശങ്കർ ടിറ്ററിൽ കുറിച്ചു

എസ്

ഇന്നലെ ജറുസലെമിലെ ഏജൻസി ആസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ പാലസ്തീനിലെ ഇന്ത്യൻ പ്രതിനിധി സുനിൽ കുമാർ സംഭാവന തുകയ്ക്കുള്ള ചെക്ക് കൈമാറി

വയസ്സായിരുന്നു

നോബൽ പുരസ്കാരം നേടിയ ആദ്യ കറുത്തവർഗ്ഗക്കാരിയാണ് ടോണി മോറിസൺ നോവലിസ്റ്റ് ലേഖിക എഡിറ്റർ അദ്ധ്യാപിക എന്നീ നിലകളിലും പ്രശസ്തയായിരുന്നു മോറിസൺ ദി ബ്ലൂവെസ്റ്റ് ഐ സോംങ് ഓഫ് സോളമൻ ബിലവഡ് ബുല ഹോം എന്നിവയാണ് മോറിസണിന്റെ പ്രശസ്തമായ നോവലുകൾ

സ്ഫോടനത്തിൽ പരിക്കേറ്റവരെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സ നൽകിയതായി ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ പറഞ്ഞു

മൽസരത്തിൽ ടോസ് നേടിയ ഇന്ത്യ ബോളിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു

ഇന്നലത്തെ ജയത്തോട്ട് മൂന്ന് മൽസരങ്ങൾ ഉണ്ടായിരുന്ന പരമ്പര ഏകപക്ഷ്യീയിമായി ഇന്ത്യ സ്വന്തമാക്കുകയായിരുന്നു